പ് ലോക്ക്ഡൌൺ ഇളവുകളെ പ്രുടർന്ന് സർക്കാർ ഓഫീസുകളും സ്ഥാപ്പരിച്ചുളും പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിച്ചു

ഡെങ്കിപ്പനി പ്രിതിരോധത്തിനായി സംയോജിത കൊതുക് പ് നിയന്ത്രണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കമായി പ് ഇന്ന് ലോക സമുദ്ര ദിനം കരകൾ മനുഷ്യ സമൂഹത്തെ വിഭജിക്കുമ്പോൾ കടൽ കൂട്ടായ്മ ഉറപ്പു വരുത്തുന്നതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

സംസ്ഥാനത്തെത്തുന്ന പ്രവാസികളിൽ ഹോം കാറന്റൈൻ സൌകര്യമില്ലാത്തവർക്ക് സർക്കാർ സൌകര്യം ഏർപ്പെടുത്തും പ്രവാസികൾ എത്തുമ്പോൾ രോഗികളുടെ എണ്ണം കൂടുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നതാണ് സർക്കാർ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിച്ചാൽ മരണനിരക്ക് കുറയ്ക്കാമെന്നും ് ശ്രീമതി കെ

ആശുപത്രിയിൽ നിന്നുള്ള രോഗപകർച്ച പ്രതിരേധിക്കുന്നതിൽ കേരളം മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു ആൻറിബോഡി പരിശോധന സംസ്ഥാനത്ത് കോവിഡ് സാമൂഹ്യ വ്യാപനം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ദ്രുത ആൻറിബോഡി പരിശോധന ഇന്ന് മുതൽ ആരോഗ്യ പ്രവർത്തകർ പൊലീസുകാർട്ടു പൊതു പ്രവർത്തകർ സർക്കാർ ജീവനക്കാർ അതിഥി ത്രിഴിലാളികൾ എന്നിവരടക്കം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽപെട്ടവരെ പരിശോധനാ വിധേയരാക്കും

ഇതുസംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ഇന്നലെ പുറത്തിറക്കിയ മാർഗ്ഗ നിർദ്ദേശത്തിൽ എല്ലാ ജീവനക്കാരും ഓഫീസുകളിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു സന്ദർശകർക്കും നിയന്ത്രണമുണ്ട് ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കും ഏഴു മാസമായ ഗർഭിണികൾക്കും വർക്ക് ഫ്രം ഹോം തുടരാം ശനിയാഴ്ച അവധിയായിരിക്കും

ഇതിനു മുന്നോടിയായുളള ശൂചീകരണപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അൺലോക്ക് വൺ എന്ന പേരിൽ ലോക്ക് ഡൌൺ ആദ്യഘട്ട ഇളവുകൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങളോടെ ലോക്ക്ഡൌൺ ഇളുവകൾ നാളെ നിലവിൽ വരും

ഇന്ന് മുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആരാധനായലൂങ്ങൾ ് തുറക്കാൻ സർക്കാർ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ പ്രിച്ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആലപ്പുഴ നഗരത്തില്പ്പ് സ്റ്റ്ചരും പരിഗണിച്ചാണ് മസ്ജിദുകൾ തുറക്കേണ്ടെന്ന തീരുമാനും എടുത്തതെന്ന് ലജ്നത്തുൽ മുഹമ്മദിയ്യ അറിയിച്ചു

നിലവിലെ സാഹചര്യം പരിഗണിച്ച് എല്ലാവരും കുറച്ച് കൂടി സഹകരിക്കണമെന്ന് മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു ടാക്സ് അടക്കാനുള്ള സമയം നീട്ടി നല്കിയതടക്കം ബസ് മേഖലയിൽ സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്തതായും മന്ത്രി കൂട്ടിച്ചേർത്തു

കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി വോയിസ് ഉറവിട നശീകരണം രാസ്പ് ട്ജൈവ മാർഗ്ഗങ്ങളിലൂടെ ലാർവകളെ നശിപ്പിക്കൽ സ്പ്രേയിക്ക് ഫോഗിംങ് എന്നിവ ഒരേ സമയം നടത്തി കൊതുകകളുടെ സാന്ദ്രത കുറയ്ക്കുന്ന പരിപാടി വെള്ളിയാഴ്ച വരെ തുടരും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ വാർഡ്തല ആരോഗ്യ ശൂചിത്വ സമിതി നേതൃത്വം നൽകും ഇന്നും നാളെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലെത്തി കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് പാഴ്വസ്തുക്കൾ ഉൾപ്പെടയുള്ളവ നിർമ്മാർജ്ജനം ചെയ്യും ബുധനാഴ്ച തോട്ടങ്ങളിലും കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിലും വ്യാഴാഴ്ച്ച പൊതു സ്ഥലങ്ങളിലും അതിഥി തൊഴിലാളി വാസസ്ഥലങ്ങളിലും വെള്ളിയാഴ്ച സ്കൂളുകളിലും ഓഫീസുകളിലും സംയോജിത കൊതുക് നിയന്ത്രണ പരിപാടി നടത്തും ഏതെങ്കിലും വൃക്തിയോ സ്ഥാപനമോ ഈ പ്രവർത്തനങ്ങൾക്ക് എതിര് നിന്നാൽ പകർച്ച വ്യാധി പ്രതിരോധ നിയമങ്ങൾക്കനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

രാജു മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ പാലക്കാട് പിടിയാന സ്ഫോടക വസ്തു കടിച്ചതിനെത്തുടർന്ന് പരിക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ ബി ജെ പി നേതാവ് മന്റ്റ്രീക്കുർ ഗാന്ധിയുടെ പരാമർശം തെറ്റാണെന്ന് മന്ത്രി കെ

മലപ്പുറം ജില്ലയിലാണ് സംഭവമെന്ന് താൻ അറിയിച്ചത്തിൽ മനേകാ ഗാന്ധി പറഞ്ഞത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു

നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടിക്കാൻ പോകരുതെന്നും മുന്നറിയിപ്പ് ഉണ്ട്

പൊൽ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ പോലീസ് സേനയിൽ നിലവിലുള്ള മൊബൈൽ ആപ്പുകൾ സംയോജിപ്പിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്

ഗൾഫ് രാജ്യങ്ങൾക്കു പുറമേ സിംഗപ്പൂർ മലേഷ്യൂ എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാകും

ദോഹ ദമാം റിയാദ് മസ്ക്കറ്റ് ദുബായ് എന്നിവിടങ്ങളിൽ നിന്നായി ഏഴ് വിമാനങ്ങളാണ് എത്തുക

കരകൾ മനുഷ്യ സമൂഹത്തെ വിഭജിക്കുമ്പോൾ കടൽ എല്ലാ ജനങ്ങളുടെയും മതങ്ങളുടെയും വളർച്ചയും കൂട്ടായ്മയും ഉറപ്പ് വരുത്തുന്നതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ലോക സമുദ്രി ദിന സന്ദേശത്തിൽ പറഞ്ഞു സമുദ്ര ദിനാചരണത്തിന്റെ പ്രസക്ത്രീട്ടയ കുറിച്ച് കേരള സർവ്വകലാശാല അകാട്ടിക് ബയോള്ള്ജി ആന്റ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോ

ഹാർബറുകളിൽ മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകൾ കരയ്ക്കടുപ്പിക്കാൻ തുടങ്ങി

ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ട്രോളിംഗ് നിരോധനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

കോഴിക്കോട് ഇയാൾക്ക് കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു

മലപ്പുറം വാഴക്കാട് പോക്സോ കേസിലെ പ്രതി മെഹബൂബ് ്ബൈക്ക് മോഷണക്കേസിലെ പ്രതി റംഷാദ് എന്നിവരാണ് രക്ഷപ്പെട്ടത്